പരീക്ഷകൾക്ക് മാറ്റമില്ല ത സ്ത്രീകൾ സന്നദ്ധരാണെങ്കിൽ രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി ടി

കോട്ടയം മെഡിക്കൽ കോളേജിലും കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും അഞ്ചുപേർ വീതമാണ് ഐസൊലേഷൻ വാർഡുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത് കൊല്ലത്ത് ഇവർ വന്ന വീട്ടിലെ മൂന്നുപേരെയും അയൽവാസികളായ രണ്ടുപേരെയുമാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു

എന്നാൽ ബോർഡ് സർവകലാശാലാ പരീക്ഷകൾക്ക് മാറ്റമില്ല രദേശ പത്തനംതിട്ട ജില്ലയിലെ അംഗൻവാടി പോളിടെക്നിക് കോളേജ് പ്രൊഫഷണൽ കോളേജ് എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നു മുതൽ മൂന്നു ദിവസം അവധി നൽകി നാളെ ആരംഭിക്കുന്ന എസ് എസ്

എന്നാൽ രോഗബാധിതരുമായി അടുത്തിടപഴകി രോഗ ലക്ഷണമുള്ള കുട്ടികൾ പരീക്ഷ എഴുതാൻ പാടില്ലെന്ന് അധികൃതർ അറിയിച്ചു

രോഗബാധിതരുമായി അകന്ന് ഇടപഴകിയ വർക്ക് അതേ സ്കൂളിൽ പ്രത്യേകം പരീക്ഷ എഴുതാൻ സൌകര്യം ഒരുക്കും

രുദ സ്ത്രീകൾ സന്നദ്ധരാണെങ്കിൽ അവർക്ക് രാത്രികാലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നിയമഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു കുടുംബശ്രീ യൂണിറ്റുകൾ വഴി എല്ലാ ഗ്രാമ പഞ്ചായത്തിലും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു

നാരീശക്തി അവാർഡ് നേടിയ ഭാഗീരഥി അമ്മയെയും തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ രോഗിയായ യാത്രക്കാരനെ പരിചരിച്ച നഴ്സിനെയും കോഴിക്കോട്ട് ഗൃഹലക്ഷ്മി സംഘടിപ്പിച്ച വനിതാദിന ചടങ്ങിൽ സംസാരിക്കവെ ഗവർണർ അഭിനന്ദിച്ചു ദെഴ കണ്ണൂരിൽ ആരംഭിക്കാനുദ്ദേശിക്കുന്ന കൈത്തറി ഗ്രാമം വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരം ലഭ്യമാക്കുന്ന വിധത്തിലായിരിക്കും സ്ഥാപിക്കുകയെന്ന് മന്ത്രി ഇ

ലോക വനിതാ ദിനത്തിൽ സ്ത്രീ സംരംഭകരുമായി കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ ആശയവിനിമയം നടത്തുകയായിരുന്നു മന്ത്രി

ഇതുവഴി സംസ്ഥാനത്ത് ഉല്പാദിപ്പിക്കുന്നതിനേക്കാൾ ലാഭത്തിൽ പുറമെ നിന്ന് വൈദ്യുതി ലഭിക്കും

ദേഴ ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു പ്രവർത്തിക്കുന്നതിൽ എൽ ഡി എഫ് ഗവൺമെന്റ് സദാ ജാഗരൂകമാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ ആഭിമുഖ്യത്തിൽ കാഴ്ച പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ കാഴ്ച പരിമിതർക്കു നൽകുന്ന സ്മാർട്ട്ഫോണുകളുടെ വിതരണം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുദ പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന്

മെഡിക്കൽ അത്യാഹിതങ്ങളിൽ ബന്ധപ്പെടാൻ ആംബുലൻസുകളും ബൈക്ക് ഫസ്റ്റ് റെസ്പോണ്ടറുകളും സജ്ജമാക്കി

രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രോഗബാധിത പ്രദേശത്തെ കോഴി താറാവ് ഓമനപ്പക്ഷികൾ തുടങ്ങിയവയെയാണ് കൊന്നൊടുക്കിയത് ഇവയുടെ തീറ്റ മുട്ട വിസർജ്യങ്ങൾ എന്നിവയും ശേഖരിച്ച് തീയിട്ട് നശിപ്പിച്ചു ദൌത്യം ഇന്നും തുടരും ദേദ കോഴിക്കോട് ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ അതിർത്തികൾ വഴി വാഹനങ്ങളിലും അല്ലാതെയും കോഴി താറാവ് കാട എന്നിവ ഉൾപ്പെടെ പക്ഷികളെ കൊണ്ടുവരുന്നത് ഇനി ഒരറിയിപ്പുണ്ടാകു ന്നതുവരെ നിരോധിച്ചതായി ജില്ലാ കല്കടർ അറിയിച്ചു ദേഴ ഇന്നലെ അന്തരിച്ച ചവറ എം

വിജയൻപിള്ളയുടെ സംസ്കാരം ഇന്നു രാവിലെ പത്തിന് ചവറയിലെ വീട്ടുവളപ്പിൽ നടക്കും

മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കെ പി സി സി പ്രസിഡൻറ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു രുദ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര നിയമ മന്ത്രിയുമായ എച്ച്

മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരും അനുശോചനം അറിയിച്ചു ദേദ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ഷാഫി പറമ്പിൽ എം എൽ എയെ തെരഞ്ഞെടുത്തു

ദേദ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ എ

കെ കൊൽക്കത്ത ഫൈനലിൽ പ്രവേശിച്ചു കൊൽക്കത്തയിൽ നടന്ന സെമിഫൈനൽ രണ്ടാം പാദത്തിൽ ബംഗളൂരു എഫ് സിയെ ഒന്നിനെതിരെ മൂന്നു ഗോളിന് തോല്പിച്ചാണ് എ ടി കെയുടെ ഫൈനൽ പ്രവേശം ശനിയാഴ്ച ഗോവയിൽ നടക്കുന്ന ഫൈനലിൽ എ

കെ ചെന്നൈയിൻ എഫ് സിയെ നേരിടും ദുദ ഐ ലീഗ് ഫുട്ബാളിൽ ഗോകുലം കേരളക്ക് ജയം ഇന്നലെ ഗോവയിൽ നടന്ന എവേമത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഗോകുലം ചർച്ചിൽ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തിയത് ഇന്നലെ ഇംഫാലിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ ട്രാവു ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇന്ത്യൻ ആരോസിനെ പരാജയപ്പെടുത്തി ദേദ കാലിക്കറ്റ് സർവകലാശാല ക്യാംപസിൽ അഖിലേന്ത്യാ അന്തർസർവകലാശാല നെറ്റ്ബാൾ ചാംപ്യൻഷിപ്പ് സെമിഫൈനൽ ലീഗ് റൌണ്ട് മത്സരങ്ങൾ രാവിലെ നടക്കും ആദ്യ സെമിയിൽ കേരള സർവകലാശാല ഹേമചന്ദ് യാഥവ് വിശ്വ വിദ്യാലയേയും രണ്ടാം സെമിയിൽ കാലിക്കറ്റ് സർവകലാശാല എം ജി സർവകലാശാലയേയും നേരിടും

ഒരു സിംഗിൾസ് ജയിക്കുകയും സാനിയ മിർസയ്ക്കൊപ്പം ഡബിൾസിൽ ജയം നേടുകയും ചെയ്ത അങ്കിത റെയ്നയുടെ മികവിലാണ് ഇന്ത്യ ഈ അതുല്യനേട്ടം സ്വന്തമാക്കിയത്

വയനാട് കാട്ടിക്കുളം നാരങ്ങാക്കുന്ന് കോളനിയിലെ മീനാക്ഷി ആണ് മരിച്ചത് രുദ മലബാർ ക്രിസ്ത്യൻ കോളെജ് വിദ്യാർഥിയായിരുന്ന ജസ്പ്രീത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ജസ്പ്രീത് സിങിന്റെ രക്ഷിതാക്കൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ട് പരാതി നല്കി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ യുവമോർച്ചാ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽകൃഷ്ണനൊടൊപ്പമാണ് രക്ഷിതാക്കൾ ഗവർണറെ കണ്ടത് ദേദ കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലെ വന്യമൃഗങ്ങളുടെ അക്രമണം തടയുന്നതിന് നടപടിയെടുക്കണമെന്നും വന്യമൃഗ ആക്രമണത്തിൽ കാർഷിക വിളകൾക്കുണ്ടാവുന്ന നാശത്തിന് നഷ്ടപരിഹാരം വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഉപവാസ സമരം നടത്തും

രദേശ കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം സംബന്ധിച്ച് കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വങ്ങൾ കെ സുധാകരൻ എം പിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി മേയർ സ്ഥാനത്ത് നിന്ന് സുമാ ബാലകൃഷ്ണന്റെ രാജിയും ഡപ്യൂട്ടി മേയർ പി കെ രാഗേഷിനെതിരെ എൽ

എഫ് നല്കിയ അവിശ്വാസ നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തു

ഇരവിമംഗലം അമ്പഴത്തുങ്കൽ ഡിജോ മാഞ്ഞൂർ സൌത്ത് കുന്നത്ത് ജോമി എന്നിവരാണ് മരിച്ചത്

ദേദ ദേശീയപാതയിൽ മലപ്പുറം മേൽമുറി പൊടിയാട് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് ഒരാൾ മരിച്ചു രാമപുരം അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പഴമള്ളൂർ കട്ടുപ്പാറ സെയ്താലിക്കുട്ടി ഫൈസിയാണ് മരിച്ചത് ദരദ ഇടുക്കി കുമളി ചെക്ക്പോസ്റ്റിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കാറിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ടര കിലോയിലധികം ഉണക്ക കഞ്ചാവ് പിടിച്ചെടുത്തു കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ സജിൻ ജോസഫ് മാഹിൻ അബൂബക്കർ എന്നിവരെ അറസ്റ്റ് ചെയ്തു